വേണമെന്ന് സർവകലാശ്രാല പിദ്യാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമീന്തി മുതിർന്ന പൌരന്മാർക്ക് വരുമാന മാർഗ്ഗം കണ്ടെത്താൻ ന് അവസരമൊരുക്കുന്ന നവജീവൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി

കേരളത്തിൽ പിൻവാതിൽ നിയമന മേളയെന്ന് പ്രതിപക്ഷനേതാവ്

നിലയിൽ

പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കടമ പ്രതിജ്ഞാബദ്ധമായാണ് സർക്കാർ ഏറ്റെടുത്തത് മഹാമാരിയുടെ ഘട്ടത്തിലും ഓൺലൈനിലൂടെ പഠന സൌകര്യമൊരുക്കി വിജകരമാക്കിയ മാറ്റിയ വിദ്യാഭ്യാസ വകുപ്പിനെ നാടാകെ അഭിനന്ദിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡ് അനന്തര കാലത്ത് കുട്ടിക്ൿ എത്തുന്നത് പഴയ സ്കൂളുകളിലേക്ക് ആയിരിക്കീർല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത്രയേറെ മാറ്റം നടന്നു സ്കൂളുക്കളുടെ വികസനത്തിനടക്കം വലിയ തോതിൽ പണം ക്ക്ണ്ടെത്തിയത് കിഫ്ബിയിൽ നിന്നാണ് ഇന്ന് ഏത് ക്ടുഗ്രാമത്തിലെ കുട്ടികളോട് ചോദിച്ചാലും കിഫ്ബിയെക്കുറിച്ച് പറയും നാടിനാകെ ഉപകാരപ്രദമായ സംവിധാനത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

ഇതിനുള്ള ചില നടപടികൾ സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചതായും അദ്ദേഹം പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെക്കുറിച്ച് നവകേരളം യുവകേരളം എന്ന ആശയത്തിലൂന്നി കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡിജിറ്റൽ മേഖലയിൽ തുല്യത ഉറപ്പാക്കാനാണ് കെ ഫോൺ പദ്ധതി ആവിഷ്ക്കരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇപ്പോൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസിലും മറ്റ് കോളേജുകളിലും നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്

ഇടുക്കി ഇൻട്രോ ഇടുക്കി മൂലമറ്റം വൈദ്യുതനിലയത്തിൽ ഇന്നലെ വൈകിട്ട് പൊട്ടിത്തെറിയുണ്ടായെങ്കിലും രാത്രി വൈകി നാല് ജനറേറ്ററുകളുടെ പ്രവർത്തനം പുനഃരാരംഭിച്ചു

കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റാർട്ട് അപ്പ് മിഷന് കീഴിലുള്ള വി

തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സംവിധാനം തയ്യാറാക്കിയത്

അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചാണ് ഇതിൽ നിക്ഷേപിക്കുന്ന മാസ്കുകൾ അണുനശീകരണം നടത്തുന്നത്

നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത്

പ്രിപിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പിണ്ട് വാങ്ങിയെന്നും എന്നാൽ പങ്കെടുക്കാതെ വഞ്ചിച്ചു്വെന്നുമാണ് പരാതി

ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് കീഴിലാണ് ഈ പുതിയ സംരഭം കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് വോയിസ്

സി സി അദ്ധ്യക്ഷന്മാരും കെ

സി വേണുഗോപാലും മൂന്ന് എ

സി സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു

ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു

രോഗബാധിതരുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കൂടിയപ്പോഴും സംസ്ഥാനത്ത് മരണനിരക്ക് ദശാംശം നാല് ശതമാനം മാത്രമാണ് ഇത് ആശുപത്രികളുടെയും ചികിത്സാ സൌകരൃങ്ങളുടെയും മികവുമൂലമാണെന്നും മന്ത്രി പറഞ്ഞു കൊല്ലത്ത് കേന്ദ്രസംഘവുമായി കൂടിക്കാഴ്ച നടത്തിയശേഷം ആകാശവാണിയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി

എസ് ഇ ബി സേവന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ആറിന് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവ്വഹിക്കും